ജെ പിയുടെ ദേശീയതല അംഗത്വ വിതരണ പരിപാടിക്ക് ഇന്ന് തുടക്കം

ജെ പിയുടെ ദേശീയതല അംഗത്വ വിതരണ പരിപാടിക്ക് ഇന്ന് തുട ക്കമാകും വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗത്വ വിതരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും ദീൻദയാൽ ഉപാധ്യായ ട്രേഡ് സെന്ററിൽ ബി ജെ പി പ്രവർത്തകരെ അദ്ദേഹം അഭിസംബോധന ചെയ്യും അംഗത്വ വിതരണത്തിന്റെ ഉദ്ഘാടനവും ഇതേ വേദിയിലായിരിക്കും

ഓൺലൈൻ വഴിയും മൊബൈൽ മിസ്ഡ് കോൾ വഴിയും നേരിട്ട് അപേ ക്ഷാഫോം നൽകിയും അംഗത്വമെടുക്കാം വാരണാസിയിലെ ഉദ്ഘാടന ചട ങ്ങിനൊപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും അംഗത്വ വിതരണത്തിന്റെ ഉദ്ഘാട നങ്ങൾ നടക്കും ജനസംഘം സ്ഥാപക നേതാവ് ശ്യാമപ്രസാദ് മുഖർജി യുടെ ജയന്തി ആഘോഷ ദിനംകൂടിയാണ് ഇന്ന് വാരണാസി വിമാനത്താ വളത്തിൽ മുൻ പ്രധാനമന്ത്രി ലാൽബഹാദൂർ ശാസ്ത്രിയുടെ പ്രതിമയും നരേന്ദ്രമോദി അനാവരണം ചെയ്യും ക്ഷേത്ര നഗരത്തിലെ ആനന്ദ് കനാൽ വൃക്ഷതൈ നടൽ പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

ജെ പി സ്ഥാനാർത്ഥി കളായ കേന്ദ്രമന്ത്രി എസ് ജയശങ്കറും പിന്നാക്ക വിഭാഗ നേതാവ് ജുഗുൽ ജി താക്കൂറും വിജയിച്ചതായി ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാനി അറി യിച്ചു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ഫലപ്രഖ്യാ പനം നടത്തിയിട്ടില്ല അമിത് ഷായും സ്മൃതി ഇറാനിയും ലോക്സഭയിലേക്ക് വിജയിച്ചതിനെ തുടർന്നുണ്ടായ ഒഴിവുകളിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഇരു സ്ഥാനാർത്ഥികളും നൂറിലേറെ വോട്ടുകൾ നേടിയതായി വിജയ് രൂപാനി ഗാന്ധിനഗറിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അർപ്പ്പെടു കരിപ്പൂരിലെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പ് ഇന്ന് വൈകീട്ട് മുഖ്യമന്ത്രി പിണ റായി വിജയൻ ഉദ്ഘാടനം ചെയ്യും രാവിലെ കരിപ്പൂരിലെ ഹജ്ജ് ഹൌസിൽ ക്യാമ്പ് തുടങ്ങും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ആദ്യ ഹജ്ജ് സർവീസ് നാളെയാണ്

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട കൃഷിവകുപ്പിന്റെ കേര കേരളം സമൃദ്ധകേരളം പദ്ധതിയിലെ തെങ്ങിൻ തൈ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകീട്ട് മുഖ്യമ ന്ത്രി പിണറായി വിജയൻ കോഴിക്കോട്ട് നിർവഹിക്കും വേങ്ങേരിയിലെ കാർ ഷിക വിപണന കേന്ദ്രത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്

കോഴിക്കോട്ട് സംഭരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി എസ് സുനിൽകു മാർ നിർവഹിക്കും

കേരഫഡിലെ അംഗസംഘ ങ്ങൾ ഉൾപ്പെടെ മുന്നൂറോളം ഏജൻസികൾക്ക് സംഭരണാനുമതി നൽകിയി ട്ടുണ്ട്

പി കെ ബി വേണുഗോപാലിനെ സ്ഥാനത്തുനിന്ന് മാറ്റി

മലപ്പുറം എസ്

രാജ്കുമാറിന്റെ കസ്റ്റഡി മരണത്തിൽ കൂടുതൽ അന്വേഷണം വേ ണമെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് സംസ്ഥാന പൊലീസ് മേധാവിക്ക് സമർ പ്പിച്ചതിന് പിന്നാലെയാണ് എസ്പിക്കെതിരായ നടപടി രുമ്പ്പെട്ടിരു നെടുങ്കണ്ടം കസ്റ്റഡിമരണക്കേസിൽ ജുഡീഷ്യൽ അന്വേഷണത്തെ സ്വാ ഗതം ചെയ്യുന്നതായി രാജ്കുമാറിന്റെ കുടുംബം അറിയിച്ചു ജസ്റ്റിസ് നാരായ ണക്കുറുപ്പ് കമ്മീഷൻ ആറുമാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാ ണ് ഗവൺമെന്റ് നിർദ്ദേശം അതേസമയം രാജ്കുമാറിന്റെ കൊലപാതക ത്തിൽ രണ്ടും മൂന്നും പ്രതികളുടെ അറസ്റ്റ് നടപടികൾ വേഗത്തിലാക്കാൻ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചു അട്ട്ട്ട്ട്ട്ട്ട്ട മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസിൽ കോടതിച്ചെലവ് ഈടാക്കണമെന്ന് എതിർകക്ഷി വാദം ഉന്നയിച്ചാൽ ഹർജി മുന്നോട്ടു കൊണ്ടുപോകുമെന്ന് കെ സുരേന്ദ്രൻ ഹൈക്കോടതിയെ അറിയിച്ചു നേരത്തെ ഹർജി പിൻവലി ക്കാൻ സുരേന്ദ്രൻ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ഹർജി പിൻവലി ച്ചാൽ കോടതിച്ചെലവ് ചുമത്താൻ നിയമ വ്യവസ്ഥയുണ്ടെന്ന് എതിർഭാഗം വാദിച്ചു

രുവെട്ടറു ഗവൺമെന്റ് മെഡിക്കൽ കോളജുകളിലെയും ഡന്റൽ കോളജുകളി ലെയും ഹൌസ് സർജൻമാരുടെയും പി ജി സൂപ്പർ സ്പെഷ്യാലിറ്റി വിദ്യാർത്ഥികളുടെയും സ്റ്റൈപ്പന്റ് വർദ്ധിപ്പിച്ചു

ആറ് വിക്കറ്റ് വീഴ്ത്തിയ പാകിസ്ഥാന്റെ ഷഹീൻഷാ അഫ്രീദിയാണ് മാൻ ഓഫ് ദി മാച്ച് ഇന്ന് ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും

മറ്റൊരു മത്സരത്തിൽ വൈകീട്ട് ന് മാഞ്ചസ്റ്റ റിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും ഇന്നത്തോടെ ലോക കപ്പിലെ ആദ്യഘട്ട മത്സരങ്ങൾ സമാപിക്കും രുവെട്ട്ടറി സംസ്ഥാനത്തെ മികച്ച പ്രാഥമിക സഹകരണ ബാങ്കിന് സഹകരണ വകുപ്പ് നൽകുന്ന അവാർഡിന് എറണാകുളം കവളങ്ങാട്ട് സർവീസ് സഹ കരണ ബാങ്കിനെ തെരഞ്ഞെടുത്തു ഇന്ന് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവാർഡ് സമ്മാനിക്കും രുമ്പ്പെട്ടിരു തിരു കൊച്ചി മുഖ്യമന്ത്രിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന സി കേശവന്റെ അൻപതാം ചരമവാർഷിക ദിനാചരണം ഇന്ന് വൈകീട്ട് തിരുവ നന്തപുരത്ത് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്യും ഇൻഫർമേ ഷൻ ആന്റ് ്പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് വിവിധ സംഘടനകളുടെ സഹ കരണത്തോടെ ദിനാചരണം സംഘടിപ്പിക്കുന്നത് രുവെട്ടെടു കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമിൽ കേരളത്തിലെ എല്ലാ കർഷകരേ യും ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ബാങ്കേഴ്സ് സമിതി യുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് കോഴിക്കോട്ട് സംസ്ഥാനതല ക്യാമ്പയിൻ സംഘടിപ്പിക്കും മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും

ടി ജലീലിനെതിരായ ബന്ധു നിയമന ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി

അഴിമതി നിരോധന നിയമപ്രകാരം ഫിറോസ് നൽകിയ ഹർജിയിൽ മന്ത്രിക്കെതിരെ കേസെടുക്കാൻതക്ക കഴമ്പില്ലെന്ന് വിജിലൻസ് അറിയിച്ചിരുന്നതായി ഹൈക്കോടതി പറഞ്ഞു രുവെട്ടറും നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ് രണ്ടുദിവസത്തെ സന്ദർശനത്തിന് കൊച്ചി നാവിക കേന്ദ്രത്തിലെത്തി കേന്ദ്രത്തിലെ പരിശീ ലന സ്ഥാപനങ്ങൾ നേരിൽകണ്ട കരംബീർ സിംഗ് നാവിക ഉദ്യോഗസ്ഥരു മായി ചർച്ചയും നടത്തി ഇന്ന് അദ്ദേഹം ഐ

എസ് ദ്രോണാചാര്യ സന്ദർശിക്കും

അതേസമയം സ്വർണ്ണത്തിന് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചത് സ്വർണ വ്യാപാരത്തെ ദോഷകരമായി ബാധി ക്കുമെന്നും ചേംബർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

നിർദ്ദേശം ഉടൻ പിൻവലിക്കണമെന്ന് സൊസൈറ്റി കേരള റീജ്യണൽ ചെയർമാൻ എം വി ശ്രേയാംസ് കുമാർ കോഴിക്കോട്ട് ആവശ്യ പ്പെട്ടു

ഇടുക്കി ജില്ലയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴ് ന്നതിനെ തുടർന്ന് ഹൈഡൽ ടൂറിസം പദ്ധതികൾ നിലച്ചു മാട്ടുപ്പെട്ടി കുണ്ട ള ആനയിറങ്കൽ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ബോട്ടിംഗ് നിർത്തിയിട്ട് ദിവസ ങ്ങളായി മഴ ലഭിക്കാത്തതിനാൽ ഡാമുകളിലെ ജലനിരപ്പ് തീർത്തും കുറ ഞ്ഞ് മിക്ക ഭാഗങ്ങളിലും കര തെളിഞ്ഞിരിക്കുകയാണ്

പേ വിഷബാധക്കെതിരെ ലൂയി പാ സ്റ്റർ വാക്സിൻ വിജയകരമായി ഉപയോഗിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത് പേവിഷബാധ നിപ്പ കുരങ്ങുപനി എലിപ്പനി തുടങ്ങി ജന്തുജന്യ രോഗങ്ങളുടെ വ്യാപനം കൂടിവരുന്ന സാഹചര്യത്തിൽ ജനങ്ങ ളെ ബോധവൽക്കരിക്കുകയും ശരിയായ വിധത്തിൽ പ്രതിരോധ പ്രവർത്ത നങ്ങളിൽ പങ്കാളികളാക്കുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം

റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാന ത്തിലാണ് ലേലം

ബഷീറിന്റെ കാലത്ത് ജീവിക്കാൻ സാധി ച്ചതും ബഷീറിനൊപ്പം ചെലവിടാൻ സാധിച്ചതും മഹാസൌഭാഗൃമാണെന്ന് എം

നടൻ മധുപാൽ ബഷീർ അനുസ്മരണ പ്രഭാഷണം നട ത്തി

മലപ്പുറം സ്വദേശികളായ മുബാറക് മുഹമ്മദ് നൌഫൽ നൌഷാദ് എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് കോഴിക്കോട് മീഞ്ചന്തയിൽ ലഹരിവിമുക്ത കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ മറ്റൊരാളെ ബ്രൌൺഷുഗറുമായി എക്സൈസ് പിടികൂടി ചാത്തമംഗലം സ്വദേശി നജ്മൂ ്സ്വാക്വിബ് ആണ് പിടിയിലായത് അർട കൊല്ലം കരുനാഗപ്പള്ളിയിൽ വാഹനത്തിലെത്തിച്ച നിരോധിത പുകയില ഉത്പന്നങ്ങൾ പിടികൂടി വാഹത്തിലുണ്ടായിരുന്ന രണ്ടുപേരെ കസ്റ്റഡിയി ലെടുത്തു രുടെട്ടിട്ടുള കൌമാരപ്രായക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിടുന്ന വിശ്വാസ് സുരക്ഷാ പദ്ധതി പാലക്കാട് ജില്ലയിൽ നടപ്പാക്കും പദ്ധതിയുടെ ഭാഗമായി അധ്യാപകരുടെ പരിശീലനം രാവിലെ കലക്ടറേറ്റ് ഹാളിൽ മന്ത്രി എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്യും രുവെട്ടിരു കോഴിക്കോട് റിട്ടയർഡ് ഡെപ്യൂട്ടി കലക്ടർ പറയഞ്ചേരി വി

സംസ്കാരം രാവിലെ മാവൂർറോഡ് ശ്മശാനത്തിൽ